മുളയ്ക്കലിനെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു

നവീൻ സിഹാഗ് ഫൈനലിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി വീണാ മുകുന്ദൻ

രാജ്വത്ത് എവിടെനിന്നും ഗുണഭോക്താവിന് പദ്ധതി പ്രയോജനപ്പെടുത്താനാവും

നാളെ ജാർഖണ്ഡിൽ നടക്കുന്ന ചടങ്ങിൽ പ് ചായ്ബാസയിലേയും കൊഡർമയിലെയും മെഡിക്കൽ കോളേജുകളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും

ഇതേത്തുടർന്ന് കർഷകസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു അടൽബിഹാരി വാജ്പേയ് രൂപീകരിച്ച ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച യിലുടെ പുരോഗതിയുടെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് വികസനം കൊണ്ടുവരാനും ജനങ്ങ ളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്ക രിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

കരാർ അനിൽ അംബാനിയുടെ ഉട്ടമിസ്ഥിതയിലുള്ള കമ്പനിക്ക് നൽകിയ കാര്യത്തിൽ ഫ്രഞ്ച് ഗവൺമെന്റിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലെന്ന പ്രസ്താവനയാണ് ശ്രീ

പ്രസ്താവനയെക്കുറിച്ച് പരിശോധിച്ച് വരികയാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വൃക്തമാക്കി

റിലയൻസ് ഡിഫൻസും ദസോൾട്ട് ഏവിയേഷനും സംയുക്തമായാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കരാറിലെത്തിയത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള വ്യാപാര കരാർ മാത്രമാണിത് പ്രതിരോധ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമനുസരിച്ച് വിദേശ ഉപകരണ ഉത്പാദക കമ്പനിക്ക് പങ്കാളിയായി ഏത് ഇന്ത്യൻ കമ്പനിയേയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദമാക്കുന്നു

സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പാർട്ടി അദ്ധ്യക്ഷനും പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി

നേതാവുമായ രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എ ഭരണകാലത്ത് കരാറിന്റ് എന്തുകൊണ്ട് അന്തിമ രുപം നൽകിയില്ലെന്ന് വ്യക്ത്രിമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

വ്യാപാരികൾക്ക് ഗുണകരമാകുംവിധമായിരിക്കും പുതിയ ഫോമിന്റെ രൂപഘടനയെന്ന് മന്ത്രിതല സംഘത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി വൃക്തമാക്കി

എല്ലാ ചെറുകിട വ്യാപാരികൾക്കും ഒരുപോലെയുള്ള നികുതി ഘടന ഉറപ്പാക്കുന്നതായിരുക്കും പുതിയ സോഫ്ട്വെയർ

പാല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ബിഷപ്പിനെ മൂന്ന് ദിപ്പസ്സ്ട്രേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആർപ്പ്പെട്ടിരുന്നു

സമ്മതപത്ര പ്രകാരമുള്ള തുക നിശ്ചിത കാലാവധിക്കുള്ളിൽ പെൻഷനിൽ നിന്ന് കൂറവൂചെയ്യാനാണ് നിർദേശം എന്നാൽ പെൻഷൻകാരുടെ സമ്മതപത്രമില്ലാതെ പണം പിരിക്കരുതെന്നും സംഭാവന നൽകാൻ ഇവരുടെമേൽ സ്വാധീനമോ സമ്മർദ്ദമോ ചെലുത്തരുതെന്നും സർക്കുലർ നിർദേശിക്കുന്നുണ്ട്

ഭാഷയാണ് ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഐ

ഏറ്റെടുത്തു

അടുത്ത ആഴ്ച വാഷിംഗ്ടണ്ണിൽ നടക്കാനിരുന്ന ചർച്ചകളാണ് ചൈന റദ്ദാക്കിയിരിക്കുന്നത്

എസിൽ തൊഴിൽ ചെയ്യാൻ അനുമതി നൽകുന്ന എച്ച്

സൂപ്പർ ഫോറിൽ ഇന്നലെ നടന്ന ആദ്യമത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരുന്നു നാളെ അബുദാബിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ളാദേശിനെയും നേരിടും